ഫലപ്രദമായി നടപ്പിൽാക്കുകയാണ് ഭീകരവാദ ഭീഷണി നേരിടാനുള്ള ഏകമാർഗ്ഗമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്

വിതരണത്തിലെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സാങ്കേതികവിദൃയുടെ കാര്യക്ഷമമായ ഉപയോഗം ആവശ്യമെന്ന് ഉപരാഷ്ട്രപതി എം

തടയുന്നതിന് പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട്

ഇന്ത്യ അമേരിക്ക വനിതാ ഹോക്കി ടീമുകൾ ഭുവനേശ്വറിൽ ഏറ്റുമുട്ടുന്നു പുരുഷന്മാരുടെ മത്സരത്തിൽ ഇന്ത്യ റഷ്യയോട് ഏറ്റുമുട്ടും

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

ആസിയാൻ രാജൃങ്ങളുമായുള്ളഗതാഗത ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ്ക്ക് അതീവ താല്പരൃമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള ഉഭയകക്ഷി താല്പര്യമുള്ള വിഷയങ്ങളിൽ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തും

പി ഉടമ്പടി സംബന്ധിച്ച ചർച്ചകളുടെ പുരോഗതിരാഷ്ട്രനേതാക്കൾ വിലയിരുത്തു മെന്നും അദ്ദേഹം പറഞ്ഞു ചരക്ക് സേവന നിക്ഷേപ മേഖലകളിൽകരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്കുള്ള ആശങ്കകൾ ചർച്ചയാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബാങ്കോക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സവാസ്ഡി പി എം മോദി എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ വംശജരുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

സമൂഹത്തിന്റെ സ്വര്യജീവിതം തടസ്സപ്പെടുത്തുകയും വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിയ്ക്കുകയും ചെയ്യുന്ന ഭീകരവാദം എന്ന ഭീഷണി നേരിടാൻ ഷാങ്ഹായ് രാജ്യങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു

ജനങ്ങൾക്ക് ശ്രേഷ്ഠമായ ഭാവിയും നല്ല ജീവിതവും ഉറപ്പാക്കുന്നതിന് അടിസ്ഥാനമായി വേണ്ടത് സാമ്പത്തിക സഹകരണമാണെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു ഷാങ്ഹായ് പങ്കാളിരാജൃങ്ങൾക്ക് ഇന്തൃയിൽ നിക്ഷേപവും വ്യാപാരവും നടത്തുന്നതിന് അനുകൂലമായ സാമ്പത്തിക പശ്ചാത്തലം ഉറപ്പാക്കുന്നതിന് ഇന്തൃ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു

മംഗലാപുരത്തെ സൂരത്കൽ എൻ

നമ്മുടെ യുവജനങ്ങൾക്ക് നിരവധി അവസരങ്ങളും അതുപോലെ വെല്ലുവിളികളും ഉണ്ടെന്നും അവരെ അതിന് പ്രാപ്തരാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസരംഗം നിലവാരമുള്ള പാഠ്യപദ്ധതികൾ ഉന്നത അവലംബിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നൈപുണ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ എത്തി നൂറ് ദിവസം തികയുന്നതിനിടെ നൂറ് നൈപുണ്യ കേന്ദ്രങ്ങൾ രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്

മഹാചുഴലിക്കാറ്റ് ഇന്നുമുതൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാനും തിരികെ വടക്ക് കിഴക്കൻ ഗുജറി്ടുത്തിന്റെ തീരപ്രദേശങ്ങളിൽ വീശാനും സാധ്യതയുള്ളതായി കേന്ദ്ര ക്ട്ലൂർപ്പസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

കടൽ പ്രക്ഷുബ്ദമായതിനാൽ മീൻ പീടുത്തക്കാർ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്

ലഷ്കർ ഇ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരസംഘടനകളെ നിയന്ത്രിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതായി ലോകരാജൃങ്ങളിലെ ഭീകരപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഭീകര പ്രപർത്തനങ്ങൾ തടയുന്നതിനായി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോ ഓർഡിനേറ്റർ നഥാൻ സെയ്ൽസ് ആണ് വാഷിംഗ്ടണിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്

ആർ

ഐ ടിയിലെ അമ്പതാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

എസ് ആർ

ചെറിയ ഉപഗ്രഹങ്ങൾ വഹിക്കൂന്ന്തീനുള്ള എസ്

വി യുടെ പരീക്ഷണം ഈ വർഷ്ട് ്ഡിസംബറിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമായ പ്രാദേശിക ഗതിനിർണ്ണയ ഉപഗ്രഹമായ നാവികന്റെസിഗ്നലുകൾ മൊബൈൽഫോണുകളിലേക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയും ഉടൻ പ്രാവർത്തികമാക്കും അറുപത്വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ പോലുള്ള ഒരുരാജ്യത്ത് ബഹിരാകാശ ഗവേഷണം ആരംഭിക്കുമ്പോൾ ഉണ്ടായ വെല്ലുവിളികളെ ഡോ വിക്രംസാരാഭായിയെ പോലുള്ള മഹാരഥന്മാർ ദീർഘദൃഷ്ടിയോടെ നേരിട്ടുവെന്നും നമ്മുടെ രാജ്യത്തെ ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഏറ്റവുംഉന്നതിയിലെത്തിക്കുന്നതിന് ഇത് സഹായിച്ചു വെന്നും ശ്രീ

ഇന്ത്യ ലോകത്തിലെ ഏഴാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്നുണ്ടെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ആരോഗ്യരംഗത്തും ശുചിത്വത്തിലും നാം ഏറെദൂരം പോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിനായി നമ്മുടെ രാജ്യത്തെ മികച്ച സർവ്വകലാശാലകളിൽ നിന്നും പഠിച്ചുവരുന്ന വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഡോ

ഉദ്യോഗസ്ഥരെയാണ് നിരീക്ഷകരായി നിയമിച്ചിട്ടുള്ളത്

നിയോഗിക്കപ്പെട്ട പ്രദേശങ്ങളിലെ സാഹചര്യം വിലയിരുത്തി തീരുമാനങ്ങളെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുക എന്ന ദൌത്യമാണ് നിരീക്ഷകർക്കുള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു

നിരവധി പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു